സുപ്രധാന നാഴികകല്ല് പിന്നിട്ടെന്ന് ഐഎസ് ആർഒ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടുദിവസ്പത്തെ സ്ന്ദർശനത്തി നായി മറ്റന്നാൾ ഫ്രാൻസിലേക്ക് പ്പോകും മലപ്പുറം കവളപ്പാറയിൽ തിരച്ചിലിനിടയിൽ മൃതദേഹത്തിന്റെ ഭാഗം കണ്ടെത്തി വയനാട് പ്പുത്തുമലയിലും തിരച്ചിൽ പുരോ ഗമിക്കുന്നു

സഹകരണ ഫെഡറേഷനുകളുടെ വായ്പ ഏറ്റെടുത്ത ഗവ നടപടി നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല

ഭ്രമണമാറ്റം വിജയകരമായിരുന്നുവെന്ന് ഐഎസ്ആർഒ വൃത്തങ്ങൾ ബംഗളൂരുവിൽ അറിയിച്ചു പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതോടെ ദൌത്യത്തിലെ ഏറ്റവും നിർണായക ചുവടാണ് ഐഎസ്ആർഒ പിന്നിട്ടത് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രവലയത്തിലേക്ക് നീങ്ങിത്തുടങ്ങിയത് തുടർന്ന് ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ പ്രവേശിച്ച പേടകം ചന്ദ്രനെ ഭ്രമണം ചെയ്തു തുടങ്ങി

പിന്നീട് പേടകത്തിൽ നിന്ന് പുറത്തുവരുന്ന ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാന്റിംഗ് നടത്തും ചന്ദ്രയാൻ രണ്ട് ദൌതൃത്തിലെ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടെന്ന് ഐഎസ്ആർഒ ചെയർമാൻ ഡോ കെ ശിവൻ ബംഗളൂരുവിൽ വാർത്താസമ്മേളനത്തിൽ പ്രറഞ്ഞു ചന്ദ്രയാൻ രണ്ടിലെ എല്ലാ സംവിധാനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്

എസ് ആർ ഒ് ടെലിമെട്രിയിലുള്ള മിഷൻ ഓപ്പറേഷൻ കോപ്ലക്സും എഡി എസ് എന്നിന്റെ പിന്തുണയോട് കൂടി ട്രാക്കിങ് ആൻഡ് കമാറ്റൻഡ് നെറ്റ്വർക്കും പേടകത്തെ നിരന്തരം നിരീക്ഷിച്ച് വരിക്യാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ പ്പേട്ടകത്തിന് ചന്ദ്രഭ്രമണപഥത്തിലേക്ക് കടക്കാനായെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓർബിറ്ററിൽനിന്ന് വിക്രം എന്നു പേരുള്ള ലാൻഡർ വേർപെട്ടുന്ന സെപ്റ്റംബർ രണ്ടിനാണ് അടുത്ത നിർണായക ഘട്ടമെന്ന് ഡോ

ലാൻഡറിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനം ഉറപ്പ് വരുത്തുന്നതിന് സെപ്റ്റംബർ മൂന്നിന് മൂന്ന് സെക്കന്റ് മാത്രം നീണ്ട് നിൽക്കുന്ന ഇടപെടൽ തങ്ങൾ നടത്തുമെന്നും ഐഎസ്ആർഒ ചെയർമാൻ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടുദിവസത്തെ സന്ദർശനത്തി നായി മറ്റന്നാൾ ഫ്രാൻസിലേക്ക് പോകും പ്രതിരോധം ആണ വോർജ്ജം തുടങ്ങിയ മേഖലകളിലും ഭീകരവാദത്തെ ചെറുക്കു ന്നതിലും സഹകരണം ശക്തിപ്പെടുത്തുന്നത് ഫ്രഞ്ച് പ്രസിഡന്റു മായി മോദി ചർച്ച ചെയ്യും

ദേശീയ ദുരന്തനിവാരണ സേനാംഗങ്ങളും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമാണ് തെരച്ചിൽ നടത്തുന്നത് എല്ലാവരെയും കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ തുടരുമെന്ന് മല പ്പുറം ജില്ലാകലക്ടർ ജാഫർ മാലിക് അറിയിച്ചു രണ്ട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരുച്ചിൽ ശക്തമാക്കിയിരി ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് പുത്തുമലയിലും ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു

അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദുരന്തനിവാ രണ സേനയുടെയും ശാസ്ത്രജ്ഞരുടെയും സന്നദ്ധ പ്രവർത്തകരു ടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്

സംസ്ഥാനത്ത് ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ശക്തമായ മഴക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും കണ്ണൂരിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ വാഴകൃഷിയിലാണ് കർഷകർക്ക് ഏറെ നഷ്ടം സംഭവിച്ചത്

തെങ്ങ് റബർ ജാതിക്ക കവുങ്ങ് തുടങ്ങിയ വിളകളും വെള്ളംകയറിയും കാറ്റിലും നശിച്ചു

നിലമ്പൂരിനുപുറമെ ഏറനാട് കൊണ്ടോട്ടി താലൂക്കുകളിലെ കാർഷിക മേഖലയെയും പ്രളയം രൂക്ഷമായി ബാധിച്ചു

കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം റോഡുകൾ തകർന്നതിനാൽ പ്രദേശത്ത് ഇവർ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് മഞ്ജു വാര്യറാണ് വിവരും സഹ്യോദരൻ മധു വാര്യറെ അറിയിച്ചത് സനൽ കുമാർ ശശിധരന്റെ സിനിമാ ്ഷൂട്ടിംഗിനായാണ് മഞ്ജു വാര്യറുൾപ്പെട്ട സംഘം ഹിമാചലിൽ എത്തിയത് രണ്ട് ദിവസത്തേക്ക് കൂടിയുള്ള ഭക്ഷണം മാത്രമേ സംഘത്തിന്റെ പക്കലുള്ളൂവെന്നും റിപ്പോർട്ടുകളുണ്ട് വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് കേന്ദ്ര സൃഹമന്ത്രി വി മുരളീധരൻ ഹിമാചൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്

സായുധസേനക്ക് കീഴിലെ വൃത്യസ്ത വിഭാഗങ്ങൾക്ക് വൃത്യസ്ത വിരമിക്കൽ പ്രായം അനുവദിച്ച നട പടി വിവേചനപരമാണെന്ന് കഴിഞ്ഞ ജനുവരിയിൽ ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു

ജമ്മു കശ്മീരിൽ സ്ഥിതി ശാന്തമായി തുടരുന്ന സാഹചര്യ ത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ യുപി സ്കൂളുകളും നാളെ തുറന്നു പ്രവർത്തിക്കും പ്രൈമറി സ്കൂളുകൾ നേരത്തെ തുറ ന്നിരുന്നു ശ്രീനഗറിലെയും മറ്റും ഗവൺമെന്റ് ഓഫീസുകളിലും ഹാജർനില സാധാരണ നിലയിലായിട്ടുണ്ട്

മുൻ രാഷ്ട്രപതി പ്രണാബ് മുഖർജി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ രാവിലെ വീർഭൂ മിയിലെത്തി പുഷ്പാഞ്ജലിയർപ്പിച്ചു

കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടന്ന രാജീവ് അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗങ്ങളായ എ കെ ആന്റണി ഉമ്മൻചാണ്ടി മുല്ലപ്പളളി രാമച ന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു രാജ്യത്ത് ആധുനിക സാങ്കേതിക വിദൃയുടെ വിപ്ലവത്തിന് തീപകർന്ന പ്രധാനമന്ത്രി ആയിരുന്നു രാജീവ്ഗാന്ധിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പഞ്ചായത്ത് രാജ് നടപ്പിലാക്കുകയും അധികാരത്തിന്റെ വളയം സമ്മാനിക്കുകയും ചെയ്ത് ജനാധിപത്യത്തിന് പുതിയ മുഖം നൽകുകയായിരുന്നു രാജീവ് ഗാന്ധി ചെയ്തതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ അനുസ്മരിച്ചു ധനികരുടെയും ദരിദ്രരുടെയും ഇടയിലെ അന്തരം കുറച്ച് വിപ്ലവകരമായ നേട്ടത്തിലേക്ക് രാജ്യത്തെ നയിച്ച മികച്ച ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി എന്ന് കണ്ണൂർ ഡി

സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി പറഞ്ഞു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാജീവ് ഗാന്ധി അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ ഫെഡറേഷനുകളുടെ വ്യായ്പ ഏറ്റെടുത്ത ഗവൺമെന്റ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു റബ്കോ കടം എഴുതിതള്ളി ഗവൺമെന്റ് നടത്തുന്നത് സ്വജനപക്ഷപാതവും അഴിമതിയുമാണ്

പ്രളയബാധിതർക്ക് ഗവു സഹായം ലഭിക്കാത്തത് കാണിച്ച് മുഖ്യ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സിപിഐഎമ്മിന്റെ മൂന്ന് ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരു വന്ന്തപൂരത്ത് സമാപിക്കും സംഘടനാ രേഖ സംബന്ധിച്ച ചർച്ചക്ക് സെക്രട്ടറി മറുപടി നൽകും

മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതി യോഗം നാളെ തുടങ്ങും

രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ വാജുഭായ് വാല മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊ ടുത്തു

മുൻമുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാർ മുൻ ഉപമുഖ്യമന്ത്രിമാരായ ആർ അശോക കെ എസ് ഈശ്വരപ്പ മുൻമന്ത്രി ഡി ശ്രീരാമലു ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിച്ച കക്ഷിരഹിതൻ എച്ച് നാഗേഷ് തുടങ്ങിയവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവരിൽ പെടു ന്നു യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസനേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീ കരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു അന്വേഷണം സമയ ബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് എഡിജിപി യോട് കോടതി നിർദേശിച്ചു കേസ് റദ്ദാക്കണമെന്ന യുഎൻഎ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെയും മറ്റു ഭാരവാഹികളുടെയും ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് മന്ത്രി ജെ മേഴ്സികുട്ടിഅമ്മയുടെ വാഹനം ഗത്താഗത കുരുക്കിൽ പെട്ട സംഭവത്തിൽ മൂന്ന് പൊലീസുകാരെ സസ്പെന്റ് ചെയ്ത നട പടി പിൻവലിച്ചു കൊല്ലം ശൂരനാട് പൊലീസ് സ്റ്റേഷനിലെ എഎ സ്ഐ നുകിബ്ദീൻ സിപിഒ മാരായ ഹുരിലാൽ രാജേഷ് എന്നിവ രുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്

പ്രശ്നത്തിൽ കേന്ദ്ര ഗവ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ചെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി കണ്ണിന് വൈറസ് രോഗം പടരുന്നു എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമ ങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തയിൽ പരിഭ്രാന്ത രാവേണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

ഇത് സാധാരണയായി കണ്ടുവരുന്ന ചെങ്കണ്ണ് രോഗമാണ്